മുൻ കേന്ദ്രമന്ത്രി ആരിഫ് മുഹമ്മദ്ഖാൻ കേരള ഗവർണ്ണറാകും

സ്ഥാനാർത്ഥിയെ ഇന്നുതന്നെ പ്രഖ്യാപിക്കുമെന്ന് ജോസ് കെ

രണ്ടു ദിവസത്തിനകം മാത്രമേ തീരൂമാനമാവു വെന്ന് പി

ജോസഫ് നാളെ ലോക നാളികേര ദിനം

എസ് ആർ ഒ ശ്രമം തുടങ്ങി മുൻകേന്ദ്രമന്ത്രി ആരിഫ് മുഹമ്മദ്ഖാൻ കേരള ഗവർണ്ണറാകും നില വിലെ ഗവർണ്ണർ ജസ്റ്റിസ് പി സദാശിവത്തിന്റെ കാലാവധി ഈ മാസം ആദ്യവാരം അവസാനിക്കുന്നതിനാലാണ് പുതിയ ഗവർണ്ണറെ നിയമിച്ച് രാഷ്ട്രപതി വിജ്ഞാപനം ഇറക്കിയത് കേരളം ഉൾപ്പെടെ അഞ്ചു സംസ്ഥാ നങ്ങളിലെ ഗവർണ്ണർ നിയമനമാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രഖ്യാ പിച്ചത്

ഭഗത്സിംഗ് കോഷിയാരി മഹാരാ ഷ്ട്രയിലും ബന്ദാരു ദത്താത്രേയ ഹിമാചലിലും തമിഴ്സൈ സൌന്ദർ രാജനെ തെലങ്കാനയിലും കൽരാജ് മിശ്ര രാജസ്ഥാനിലും ഗവർണ്ണറാകും സംസ്ഥാനത്ത് വോട്ടർപട്ടിക പുതുക്കൽ നടപടിക്ക് തുടക്കമായി

വോട്ടർ പട്ടിക യിൽ പേര് പരിശോധിക്കാനുള്ള അവസരം മുഴുവൻ സമ്മതിദായകരും വിനിയോഗിക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാംമീണ് തിരുവനന്തപുരത്ത് അറിയിച്ചു പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ മണ്ണിന്റെയും ജലത്തിന്റെയും സംരക്ഷണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

പ്ലാസ്റ്റിക്ക്മുക്തമായ ഓണം ആയിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കാലവർഷ ക്കെടുതിയ്ക്ക് ശാസ്ത്രീയമായ പരിഹാരം കാണണം ഇതിന് ശാസത്രീയമായ മണ്ണ്ട ജല സംരക്ഷണം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പരിസ്ഥിതി സൌഹൃദ പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാനൃം കൊടുക്കണം കല്ലും മണലും ഉപയോഗിക്കാതെ വീട് നിർമ്മിക്കുന്ന രീതി രൂപപ്പെട്ടു വരണം കാർഷിക രംഗത്തെ പുരോഗതിക്കായി തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതലായി ഇടപെടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു

സിനിമാ ടിക്കറ്റിന് ജി

പ്രകാരം വിനോദ നികുതി ഏർപ്പെടു ത്തി

ചന്ദനത്തിരിയും മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യു ന്നതിന് കേന്ദ്രഗവൺമെന്റ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ളതും കത്തുന്ന സ്ഥഭാവമുള്ളതുമായ ഉൽപ്പന്ന ങ്ങളായതിനാലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് വിദേശവാണിജൃവകുപ്പ് ന്യൂഡൽഹിയിൽ അറിയിച്ചു മുറികളിലെ ദൂർഗന്ധം അകറ്റുന്നതിന് ഉപയോഗിക്കുന്ന സുഗന്ധ വസ്തുക്കൾ ഇറക്കു മതി ചെയ്യുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പില്ലെ സ്ഥാനാർത്ഥി നിർണ്ണ യത്തെച്ചൊല്ലി കേരളാ കോൺഗ്രസ് എമ്മിൽ ഭിന്നത രൂക്ഷമായി

എന്നാൽ എല്ലാവരുമായും ചർച്ച ചെയ്ത് രണ്ടുദിവസത്തിനകം മാത്രമേ തീരുമാനമുണ്ടാകൂവെന്ന് പി ജെ ജോസഫ് പറഞ്ഞു ഇരു വിഭാഗവുമായും കോൺഗ്രസ് നേതാക്കളായ ഉമ്മൻ ചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഇന്നു ചർച്ച നടത്തും യു ഡി എഫ് കൺവീനർ ബന്നി ബഹനാന്നും ചർച്ചകളിൽ പങ്കെടുക്കും അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകുമെന്ന് ബിജെപി നേതൃത്വം അറിയിച്ചു മൂന്നു പേരടങ്ങുന്ന പട്ടിക കേന്ദ്ര നേതൃത്വത്തിന് സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള കൈമാറിയിട്ടുണ്ട്

അതിനിടെ എൽഡിഎഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പു പ്രചരണം പഞ്ചായത്തുതല കൺവെൻഷനോടെ തുടക്കമായി തലപ്പലത്ത് ആദ്യ കൺവൻഷൻ നടന്നു ഭൂമി തരംമാറ്റുന്നതിന് അപേക്ഷകൾ ആർ ഡി ഒ ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നത് പരിഗണിച്ച് അവ തീർപ്പാക്കാൻ പ്രത്യേക അദാലത്ത് നടത്തുമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ അറിയിച്ചു തൃശ്ശൂർ ജില്ലാ വികസ സമിതിയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി

സുനിൽകുമാർ പറഞ്ഞു നാളികേരാധിഷ്ഠിത നൈപുണ്യ വികസന വിജ്ഞാന പദ്ധതിയുടെ ആരംഭവും ലോകനാളികേര ദിനാചരണവും വെള്ളാനിക്കരയിലെ കാർഷിക സർവകലാശാല സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

നാളികേര കർഷകരെ സഹായിക്കാൻ വിവിധ പദ്ധതികൾ ഈ വർഷം ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു മലബാർ റിവർ ക്രൂയീസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുന്ന ടൂറിസ്റ്റ് യാത്രാ ബോട്ടിന്റെ ഉദ്ഘാടനം കണ്ണൂർ പറശ്ശിനി പാലത്തിന് സമീപം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കണ്ണൂർ മയ്യിൽ ആസ്ഥാനമായ റോയൽ ടൂറിസം ഡെവലപ്പമെന്റ് കോ ഓപ്റേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ബോട്ട് സർവ്വീസ് ആരംഭിച്ചത് ഓൺലൈനിൽ ബുക്ക്ചെയ്യുന്ന ട്രെയിൻ ടിക്കറ്റിന് സർവീസ് ചാർജ് ഏർപ്പെടുത്തി

ഇതിന് പുറമെ ജി

യും ബാധക മായിരിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ കാറ്ററിങ് ആൻഡ് ടൂറിസം കോർപ റേഷൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാ ഹിപ്പിക്കാൻ മൂന്ന് വർഷംമുമ്പ് ട്രെയിൻ ടിക്കറ്റിന് സർവീസ് ചാർജ് ഒഴി വാക്കിയിരുന്നു പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധനും ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടറുമായിരുന്ന ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ ബംഗലൂരുവിൽ നിര്യാതനായി

കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ഉൾപ്പടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് സംസ്കാരം നാളെ ബംഗലൂരുവിൽ നടക്കും ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൌത്യമായ ചന്ദ്രയാൻ രണ്ടിന്റെ ഭ്രമണപഥം കുറയ്ക്കുന്നതിന് ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞർ അവസാനഘട്ട ശ്രമമാരംഭിച്ചു

നാളെ ഭ്രമണപഥ ത്തിൽനിന്ന് ലാന്റർ വേർപെടും കഴിഞ്ഞമാസം ഇരുപതിനാണ് ചന്ദ്ര യാൻ രണ്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത് അവശ്യസാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന സപ്ലൈകോ ഓണം ഫെയറിന് ജില്ലകളിൽ തുടക്കമായി മലപ്പുറത്ത് മന്ത്രി കെ

ജലീൽ ജില്ലാതല ഉദ്ഘാടനം നിർവ്വഹിച്ചു താലൂക്ക്തല ഫെയറുകൾ നാളെമുതലും നിയോജക മണ്ഡല ഫെയറുകൾ ഈ മാസം ആറുമുതലും ആരംഭിക്കും കോഴിക്കോട്ട് പലവൃഞ്ജനങ്ങൾക്കൊപ്പം ഗൃഹോ പകരണങ്ങളു മൊരുക്കി സപ്ലൈകോ ഓണം ഫെയ്ർ വൈകീട്ട് ഇ

എസ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കും മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

കെ രാഘവൻ എം പി ആദ്യവിൽപ്പന നിർവ്വഹിക്കും

നിലവിലുള്ള മാവേലി സ്റ്റോറുകളും സൂപ്പർമാർക്കറ്റുകളും പീപ്പിൾസ് ബസാർ അപ്നാ ബസാർ എന്നിവയും ഓണ വിപണിയായി മാറും ഓണക്കാലത്ത് വ്യാജമദ്യ നിർമാണം അനധികൃത മദ്യ വില്പന മയക്കുമരുന്നുകളൂടെ ഉപഭോഗം എന്നിവ തടയുന്നതിന് എക് സൈസ് പോലീസ് സംയുക്ത റെയ്ഡുകൾക്ക് മന്ത്രി കെ രാജു നിർദേശം നൽകി ലഹരി വസ്തുക്കൾ അതിർത്തി കടന്ന് എത്തുന്നത് തടയുന്നതിന് ചെക്ക് പോസ്റ്റുകളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു

സ്പോൺസർഷിപ്പുകൾ സ്വീകരിക്കാതെ ഗവൺമെന്റ് ഫണ്ട് മാത്രം ചെലവഴിക്കും

കണ്ണൂർ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി കെട്ടിക്കിടക്കുന്ന പട്ടയ അപേക്ഷകളിൽ സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുമെന്ന് ജില്ലാ കലക്ടർ ടി

ഇതിനായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് നടപടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഫിറ്റ് ഇന്ത്യ മൂവ് മെൻറിന്റെ ഭാഗമായി കണ്ണൂരിൽ നിന്ന് മാടായി പാറയിലേക്ക് സൈക്കിൾ റൈഡ് തുടങ്ങി കണ്ണൂർ സൈക്സിംഗ് ക്ലബ് സെക്രട്ടറി കെ വി രതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ധ്യാൻചന്ദ് പുരസ്കാരം നേടിയ ഒളിമ്പ്യൻ മാനുവൽ ഫെഡറിക്കിന് കണ്ണൂരിൽ സ്വീകരണം നൽകി കണ്ണൂർ റെയിൽവെ സ്റ്റേഷനിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഫെഡറിക്കിനെ സ്വീകരിച്ചു തുടർന്ന് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലേക്ക് ആനയിച്ചു

ശശിധ രൻപിള്ള തിരുവനന്തപുരത്ത് പറഞ്ഞു ഉരുൾപൊട്ടലും മഴിയേയും തുടർന്ന് ജലസ്രോ തസ്സുകളിൽ ചെളി കലരുന്ന സാഹച്ചരൃം കണക്കിലെടുത്ത് ജല ശുദ്ധീകരണ പ്ലാന്റുകളുടെ കാര്യക്ഷമത വർധിപ്പിക്കാൻ നടപടികൾ ആരംഭിച്ചതായി പാലക്കാട് ജില്ലാ കലക്ടർ ഡി

മലമ്പുഴയിൽ ഡ്യുവൽ ഫിൽട്രേഷൻ പ്ലാന്റ് പദ്ധതി പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു ഖസാക്കിന്റെ ഇതിഹാസം നോവലിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ത്രസാക്കിലെ ഒ വി വിജയൻ സ്മാരകത്തിൽ വിവിധ പരിപാടികൾ നടക്കും തിരുവനന്തപുരത്തെ മലയാളം പള്ളിക്കൂടം പഠിതാക്കൾക്ക് സ്വീകരണം നൽകും ആർടിസ്റ്റ് ഭട്ടതിരിയുടെ ഖസാക്ക് കലിഗ്രാഫി സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും